കർണാടകയിൽ ക്ലോൺഗ്രസ് ജെഡിഎസ് കൂട്ടുകക്ഷി ഗവൺമെന്റ് ഇന്ന് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടുന്നു

കൂൽഭൂഷൺ ജാദവ് കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി ഇന്ത്യ സ്വാഗതം ചെയ്തു പാകിസ്ഥാൻ വിയന്ന കരാർ ലംഘിച്ചെന്ന ഇന്ത്യയുടെ വാദം കോടതി ശരിവച്ചെന്ന് കേന്ദ്ര ഗവൺമെൻ്റ്

മുഖ്യമായും വെള്ളപ്പൊക്ക നിയന്ത്രണം ലക്ഷ്യമിടുന്ന സംഭരണാടിസ്ഥാനത്തിലുള്ള ജല വൈദ്യുത പദ്ധതിയായിരിക്കും ഇതെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവദേക്കർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഈ വർഷം ആദ്യം ഇറക്കിയ ഓർഡിനൻസിന് പകരമാണ് പുതിയ നിയമം

താൻ നയിക്കുന്ന മന്ത്രിസഭയിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി ഒറ്റ വാചകത്തിലാണ് ശ്രീ

എൽ എ മാർ സ്പീക്കർക്ക് രാജി സമർപ്പിച്ചതോടെ ഗവൺമെന്റ് ന്യൂനപക്ഷമായി ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ച രണ്ട് സ്വതന്ത്ര എം എൽ

വിമത എം

എ മാരുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗവൺമെന്റ് വിശ്വാസ വോട്ട് തേടുന്നതെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു വിശ്വാസവോട്ടെടുപ്പിൽ പങ്കെടുക്കാത്ത എം എൽ എ മാർക്കെതിരെ കൂറുമാറ്റ നിയമമനുസരിച്ച് നടപടി എടുക്കുമെന്ന് കോൺഗ്രസും ജെഡിഎസും ഇവർക്ക് നൽകിയ വിപ്പിൽ പറയുന്നു

മധൃസ്ഥ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചശേഷം തുടർനടപടികൾ തീരുമാനിക്കാൻ ചീഫ് ജ്യസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് അട്ടുത്ത്ര്മാസം രണ്ടിന് കേസ് വീണ്ടും പരിഗണിക്കും മധ്യസ്ഥ സമീത്രി അധ്യക്ഷൻ ജസ്റ്റിസ് ഖലീഫുള്ള സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം രഹസ്യമായി സൂക്ഷിക്കുമെന്നും കോടതി അറിയിച്ചു

ഇന്നലെ നടന്ന സർവ്വകക്ഷി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി കോൺഗ്രസ് എന്നീ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു സഭാ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷ കക്ഷികളുടെ സഹകരണം സ്പീക്കർ ആവശ്യപ്പെട്ടു അന്തരിച്ച അംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനാൽ ആദ്യദിവസം മറ്റ് സഭാ നടപടികളൊന്നും ഉണ്ടായിരിക്കില്ല

പുതിയ മുനിസിപ്പാലിറ്റി ബിൽ പാസാക്കാനാണ് സമ്മേളനം ചേരുന്നത് ഇന്ന് ബിൽ സഭയുടെ മേശപ്പുറത്ത് വെയ്ക്കും ബിൽ വിശദമായി പഠിയ്ക്കാൻ നിയമസഭാംഗങ്ങൾക്ക് ഒരു ദിവസത്തെ സമയം ലഭിക്കും

പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനങ്ങൾക്കുള്ള വൃവസ്ഥകളും നിർദ്ദിഷ്ട ബില്ലിലുണ്ട് പ്രത്യേക സമ്മേളനത്തോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷയാണ് നിയമസഭാ മന്ദിരത്തിന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത്

വിക്ഷേപ്പ്പ്ണ്ട് പ്പേടക സംവിധാനത്തിൽ കണ്ടെത്തിയ തകരാർ പരിഹരിച്ചതീന്റെ തുടർന്നാണ് പുതുക്കിയ തീയതി തീരുമാനിച്ചത്

കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ നൽകിയ പാകിസ്ഥാൻ സൈനിക കോടതി വിധിക്കെതിരെ നീതിന്യായ കോടതിയെ സമീപിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി സോഫിയ വോയ്സ് വധശിക്ഷ റദ്ദാക്കിയ കോടതി പാക് സൈനിക കോടതിയുടെ വിധി പുനഃ പരിശോധിക്കണമെന്നും പാകിസ്ഥാനോട് ആവശൃപ്പെട്ടു

കേസിലെ അന്താരാഷ്ട്ര കോടതിയുടെ ഇടപെടലിന് ഇന്ത്യക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നതായി കുൽഭൂഷൺ ജാദവിന്റെ അഭിഭാഷകൻ ഹരീഷ് സാൽവെ പറഞ്ഞു അന്താരാഷ്ട്ര നീതി ന്യായ കോടതിയുടെ വിധിയെ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തുടങ്ങിയവർ സ്വാഗതം ചെയ്തു സത്യത്തിന്റെയും നീതിയുടെയും വിജയമാണിതെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ജാദവിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ നിരന്തര പ്രയത്നത്തിന്റെ ഫലമാണ് കോടതി വിധിയെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കോടതി വിധി സ്വാഗതാർഹമെന്ന് കോൺഗ്രസ് നേതാക്കളും അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പദ്മ ജമുന മേഘ്ന ടീസ്റ്റ ഘാഗോട്ട് ബ്രഹ്മപുത്രി എന്നീ നദികളാണ് അപായനില കവിഞ്ഞ് ഒഴുകുന്നത്

വെള്ളപ്പൊക്കത്തിൽ റോഡ് റെയിൽ വാർത്താവിനിമയ സംവിധാനങ്ങളും പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്

ജനീവയിൽ ഇന്നലെ ചേർന്ന ലോകാരോഗൃ സംഘടനയുടെ അടിയന്തര സമിതി യോഗത്തിനുശേഷമാണ് പ്രഖ്യാപനം ഉണ്ടായത് കോംഗോയിൽ എബോള രോഗം സ്ഥിരീകരിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് യു

നവംബറിൽ നടക്കാനിരിക്കുന്ന പതിനൊന്നാമത് ബ്രിക്സ് സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാരൃ മന്ത്രാലയം വാർത്താ കുറുപ്പിൽ അറിയിച്ചു

ഹരിയാന അരുണാചൽ പ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും യോഗത്തിൽ പൂങ്കെടുക്കുന്നുണ്ട്

ഇന്ത്യൻ താരം വി

വസ്തുവിന്റെ കൈവശാവകാശം സംബന്ധിച്ച് ഗ്രാമവാസികൾക്കിടയിൽ ഉണ്ടായ തർക്കമാണ് വെടിവയ്പ്പിൽ കലാശിച്ചത്

ഇന്ന് മുതൽ രണ്ട് ദിവസത്തേക്ക് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്